കേരളത്തിലെ വെള്ളപ്പൊക്ക നാശനഷ്ടങ്ങൾ വിലയി രുത്താൻ പത്ത് ദിവസത്തിനകം കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘം എത്തും മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നാലു ലക്ഷം രൂപ വീതം സഹായധനം നൽകുമെന്ന് മന്ത്രി ജി സുധാകരൻ

ടി കൌൺസിൽ തീരുമാനം സാനിറ്ററി നാപ്കിന്റെ നികുതി എടുത്തുകളഞ്ഞു ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം സമനിലയിൽ പിരിഞ്ഞു ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് ഇന്ന് സമാപിക്കും കേരളത്തിലെ വെള്ളപ്പൊക്ക നാശനഷ്ടങ്ങൾ വിലയിരു ത്താൻ പത്തുദിവസ്ത്തിനകം കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘത്തെ സംസ്ഥാനത്തേക്കയക്കു മെന്ന് കേന്ദ്രസഹമന്ത്രിമാരായ കിരൺ റിജ്ജുവും അൽഫോൺസ് കണ്ണന്താനവും കൊച്ചി യിൽ അറിയിച്ചു ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ വെള്ള പ്പൊക്കബാധിത പ്രദേശങ്ങൾ നേരിൽ കണ്ട ശേഷം കൊച്ചി യിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ സംസ്ഥാന ഗവൺമെന്റിന്റെ വെള്ളപ്പൊക്ക ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്നും ്വഅവർ വിലയിരു ത്തി സംസ്ഥാനത്തിന്റെ ആവശ്യാനുസരണം അടിയന്തിര സഹായങ്ങൾ ലഭ്യമാക്കുമെന്ന് കേന്ദ്രസഹമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു കടൽ ഭിത്തികളും പുലിമുട്ടുകളും നിർമ്മിക്കുന്നതിന് ദീർഘകാലാടിസ്ഥാനത്തിൽ പരിഹാര മാർഗ്ഗങ്ങൾ ആവിഷ്ക രിക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അൽഫോൺസ് കണ്ണ ന്താനം പറഞ്ഞു കൃത്യസമയത്തുതന്നെയുണ്ടായ കേന്ദ്രമ ന്ത്രിമാരുടെ സന്ദർശനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറ ഞ്ഞു മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നാലു ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മന്ത്രി ജി

ആറുലക്ഷം പേരെയാണ് വെള്ളപ്പൊക്കം ബാധി ച്ചുതെന്നും ഇതിൽ മൂന്നരലക്ഷം പേരും കുട്ടനാട്ടിലാ ണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് മഴക്ക് നേരിയ ശമനം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ മഴയുട്ടെ ശക്തി കുറ ഞ്ഞു വടക്കൻ ജില്ലകളിലും മഴ കുറവാണ് എന്നാൽ ഒന്നോ രണ്ടോ ദിവസംകൂടി മഴ തുടരുമെന്നാണ് കാലാ വസ്ഥാ സൂചന ആന്ത്രോത്ത് ദ്വീപിൽനിന്ന് മത്സ്യ ബന്ധനത്തിന് പോയ നാല് തൊഴിലാളികളെ കാണാതായി ഇന്നലെ രാവിലെ ചെറിയ തോണിയിൽ പുറപ്പെട്ട ഇവർ വൈകിട്ട് തിരിച്ചെത്താത്തിനെത്തുടർന്നാണ് തെരച്ചിൽ ആരംഭി ച്ചത്

മൂവാറ്റുപുഴ ഓണക്കൂർ പാലംകടവിൽ കഴിഞ്ഞദിവസം ഒഴുക്കിൽപെട്ട് കാണാതായ എറ്റമ്പൂരിൽ ശങ്കരൻ നായ രുടെ മൃതദേഹം കണ്ടെത്തി ഇന്നലെയാണ് മൃതദേഹം ഊറനാട്ടുചിറയിൽ കണ്ടെത്തിയത്

സാനിറ്ററി നാപ്കിൻ സമ്പുഷ്ടീക രിച്ച പാൽ എന്നിവയുടെ നികുതി എടുത്തുകളഞ്ഞു തടി യിലും മാർബിളിലും കല്ലുകളിലും തീർത്ത പ്രതിമകൾ രാഖി അടക്കം കരകൌശല ഉല്പന്നങ്ങൾ എന്നിവയ്ക്കും നികുതി ഒഴിവാക്കി

പുതിയ നിരക്ക് അടുത്ത വെള്ളിയാഴ്ച നിലവിൽ വരു മെന്ന് കേന്ദ്രധനമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു ന്യൂഡൽഹിയിൽ ചേർന്ന ജി എസ്

എന്നാൽ നികുതി മാസാ മാസം അടക്കേണ്ടതാണ് പ്രധാനമന്ത്രിക്കും രാജ്യരക്ഷാമന്ത്രിക്കും എതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചെന്ന് കാണിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ നാല് ബി ജെ പി എം പിമാർ ലോക്സഭാ സ്പീക്കർക്ക് അവകാശലംഘന നോട്ടീസ് നൽകി സഭാചട്ടങ്ങൾ പ്രകാരം മുൻകൂർ നോട്ടീസ് നൽകാതെ നരേന്ദ്രമോദി ക്കും നിർമ്മലാ സീതാരാമനുമെതിരെ സഭയിൽ ആരോ പണമുയർത്തിയതിന്റെ പേരിലാണ് നോട്ടീസ് അവിശ്വാ സപ്രമേയ ചർച്ചാവേളയിലായിരുന്നു രാഹുൽ ഗാന്ധി ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്

ഡി എയിൽ ചേരില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി

ജെ പി പാർട്ടിയെ സമീപിച്ചാൽപ്പോലും സഖ്യത്തിൽ ചേരി

ഭൂരിപ ക്ഷവും ധാർമ്മികതയും തമ്മിലുണ്ടായ പോരാട്ടമായി രുന്നു അവിശ്വാസപ്രമേയത്തിലൂടെ ഉണ്ടായതെന്നും ചന്ദ്രബാബു നായിഡു അഭിപ്രായപ്പെട്ടു ലൈഫ് മിഷൻ പദ്ധതിയിൽ ഗവൺമെന്റ് നൽകുന്ന തുകയ്ക്ക് പൂർത്തിയാക്കാവുന്ന വീടുകൾ നിർമ്മിക്ക ണമെന്ന് മന്ത്രി ഡോ

പാല ക്കാട് മണ്ണാർക്കാട്ട് ലൈഫ് മിഷൻ വീടുകളുടെ താക്കോൽദാനവും രണ്ടാംഘട്ടി ധനസഹായ വിതര ണവും നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി

വനിതാടലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം ഒന്ന് ഒന്ന് സമനിലയിൽ പിരിഞ്ഞു ലണ്ടനിൽ ആദ്യ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇന്ത്യ മുന്നിട്ട് നിന്നെങ്കിലും രണ്ടാം പകുതിയിൽ ഇംഗണ്ട് ഗോൾ മട ക്കി കോഴിക്കോട് കോടഞ്ചേരിയിൽ ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും

വനിതകളുടെ ബോട്ടർ ക്രോസിൽ നെതർലാൻഡ് താരം മാർട്ടിന വെഗ്മാൻ ഒന്നാമതെത്തി വഡോദരയിൽ ദേശീയ യൂത്ത് അത്ലിറ്റിക്സിന്റെ ആദ്യ ദിനത്തിൽ കേരളത്തിന്റെ ശ്രീലക്ഷ്മിക്ക് സ്വർണ്ണം വനികാ പോൾവോൾട്ടിലാണ് ഈ നേട്ടം ഈയിന ത്തിൽ കേരളത്തിന്റെ നവന ലക്ഷ്മിയ്ക്കാണ് വെള്ളി കാലിത്തീറ്റയുടെയും കോഴിത്തീറ്റയുടെയും ഗുണനി ലവാരം ഉറപ്പാക്കാൻ ഇന്തൃയിലാദ്യമായി കേരളം നിയമ നിർമ്മാണം നടത്തുമെന്ന് മന്ത്രി കെ

അട്ടപ്പാടിയിൽ ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി മീനാക്ഷിപുരം മാതൃകയിൽ അന്യസം സ്ഥാന പാലിന്റെ ഗുണനിലവാര പരിശോധനയ്ക്കായി ആര്യങ്കാവിലും ചെക്ക്പോസ്റ്റ് സ്ഥാപിക്കുമെന്ന് മന്ത്രി പറ ഞ്ഞു കാട്ടാനശല്യം തടയാൻ അട്ടപ്പാടിക്ക് മാത്രമായി പ്രത്യേക ദ്രുത പ്രതികരണസംഘം യൂണിറ്റ് അനുവദി ക്കുമെന്നും കെ

പാലക്കാട് ജില്ലയിൽ ഇപ്പോഴത്തെ ഒരു യൂണിറ്റിന് പുറമെ രണ്ട് യൂണിറ്റുകൾ കൂടി സ്ഥാപിക്കുമെന്ന് മന്ത്രി വെളിപ്പെടുത്തി പരമ്പരാഗത കള്ള് വ്യവസായത്തെ സംരക്ഷിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ ആല പ്പുഴയിൽ പറഞ്ഞു

കേരള എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊന്നാനിയിൽ പുതിയ ബോട്ടുകളുടെ നിർമ്മാണ ത്തിനും നവീകരണത്തിനും കഴിയുന്ന ബോട്ട് നിർമ്മാണ യാർഡ് സ്ഥാപിക്കുമെന്ന് മന്ത്രി ജെ

പൊന്നാനി ഹാർബർ പരിസരത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങരയിൽ മറ്റൊരു യാർഡ് സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു നെടുമ്പാശ്ശേരിയിൽ ഹജ്ജ് വളണ്ടിയർമാരുടെ സംഗമം മന്ത്രി കെ

ഹാജിമാരുടെ സേവനത്തിനായി പുറപ്പെടുന്ന വളണ്ടി യർമാർ മക്കയിലും മദീനയിലും ഏതുസമയത്തും സേവന സന്നദ്ധരായി നിലകൊള്ളണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

ആദ്യമായാണ് വനിതകളെ വളണ്ടിയർമാ രായി അയക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചരക്ക് ലോറികളുടെ അഖിലേന്ത്യാ പണിമുടക്ക് മൂന്നാം ദിവസത്തേക്ക് കടന്നു കേരളത്തിലെ തൊണ്ണൂ റായിരത്തോളം ലോറികൾ പണിമുടക്കുന്നുണ്ടെന്ന് ലോറി ഓണേഴ്സ് വെൽഫെയർ ഫെഡറേഷൻ അവകാശപ്പെ ട്ടു ചെറുകിട ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ രണ്ടര ലക്ഷ ത്തോളം വാഹനങ്ങൾ പണിമുടക്കിലാണെന്നും അവർ അറിയിച്ചു കേരളത്തിലേക്ക് പച്ചക്കറികളും പലചരക്കും പഴങ്ങളും കൊണ്ടുവരുന്ന ലോറികൾ ഇന്നലെ എത്തി യില്ലെന്നാണ് റിപ്പോർട്ട് കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഐ ടി

ടി ഐയ്ക്ക് കിരീടം

കണ്ണൂർ വനിതാ ഐ ടി ഐയ്ക്കാണ് രണ്ടാം സ്ഥാനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കണ്ണൂർ മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചി നിടെയുണ്ടായ സംഘർഷത്തിൽ ഇരുനൂറോളം പേർക്കെ തിരെ പൊലീസ് കേസെടുത്തു ഷുഹൈബ് വധക്കേ സിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മട്ടന്നൂർ സി ഐ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് ഇടുക്കി ജില്ലയിൽ ബ്ലേഡ് മാഫിയ പ്രവർത്തനം അമർച്ച ചെയ്യാനും കൊള്ളപ്പലിശക്കാർക്കെതിരെ നിയമ നടപടിക്കുമായി നാളെ പൈനാവ് കുയിലിമലയിലെ ജില്ലാ പൊലീസ് മേധാവിയുടെ ഓഫീസിൽ ഓപ്പറേ ഷൻ കുബേര അദാലത്ത് നടക്കും പൊതുജനങ്ങൾക്ക് ജില്ലാ പൊലീസ് മേധാവിയെ നേരിൽകണ്ട് പരാതി നൽകാം ഇടുക്കിയിലെ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന് ഐ

വികസനപാതയിലെ മുന്നേറ്റത്തിന് ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരും നാട്ടു കാരും ഒറ്റക്കെട്ടായി നടത്തുന്ന പ്രവർത്തനങ്ങൾ മുൻ നിർത്തിയാണ് സർട്ടിഫിക്കേഷൻ നിർമ്മാണ മേഖലയിലെ തൊഴിൽ നൈപുണ്യ പരി ശീലനത്തിന് സംസ്ഥാന ഗവൺമെന്റ് കൊല്ലം ചവറ യിൽ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര പഠനകേന്ദ്രം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും സംസ്ഥാന തൊഴിൽ നൈപുണ്യ വകുപ്പാണ് പഠന കേന്ദ്രം ആരംഭിക്കുന്നത്

മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു സംസ്ഥാനത്തെ സർവ്വകലാശാലാ വൈസ് ചാൻസലർമാ രുടെ യോഗം നാളെ കൊച്ചിയിൽ ചേരും ചാൻസലർ കൂടി യായ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം യോഗത്തിൽ അധ്യ ക്ഷനായിരിക്കും

കർക്കിടക മാസപൂജകൾ പൂർത്തിയാക്കി ശബരിമല യിൽ നട അടച്ചു